ജയരാജൻ രാവിലെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും

സ്വാതന്ത്യു ദിന തലേന്നാളായ ഇന്ന് വൈകീട്ട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും നിറപുത്തരി ആഘോഷത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകീട്ട് തുറക്കും ശബരിമല യാത്ര തൽക്കാലം ഒഴിവാക്കാൻ ഭക്തർക്ക് നിർദേശം ൾ ൽ ൾ സംസ്ഥാനത്ത് കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ തുടരുന്നു

കോഴിക്കോട് മലപ്പുറം ഇടുക്കി വയനാട് കാസർകോട് കണ്ണൂർ ജില്ലകളിൽ പലയിടങ്ങളിലും ഉരുൾപ്പൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായി

കോഴിക്കോട് ഇടുക്കി മല പ്പുറം കണ്ണൂർ വയനാട് ജില്ലകളിൽ കരസേനയും ന്യാവികസേനയും വ്യോമസേനയും ദേശീയ ദുരന്തനിവാരണ സേനയും മദ്രാസ് റജി മെന്റിന്റെ ഒരു യൂണിറ്റും രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുട രുകയാണ് കണ്ണൂർ കരിക്കോട്ടക്കരി പൊലീസ്സ്റ്റേഷൻ പരിധിയിലെ ഉരു പ്പുംകൂറ്റിയിൽ ഇന്നലെ അർധരാത്രി ഉരുൾപ്പൊട്ടി നാശനഷ്ടങ്ങളെ ക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല

മലയോര മേഖലയിൽ ഉൾപ്പെടെ ജില്ലയിൽ പരക്കെ മഴ പെയ്യുന്നുണ്ട്

കാസർകോട്ട് ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിൽ കുന്നംകൈ ടൌണിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് മണ്ണിനടിയിൽ ഒരാൾ കുടുങ്ങിയതായി സംശയം പൊലീസും അഗ്നി സുരക്ഷാ സേനയും രാത്രി വൈകിയും പരിശോധന നടത്തിയെങ്കിലും ആളെ കണ്ടെത്താ നായില്ല പരിശോധന ഇന്നും തുടരും

ഇന്നലെ ഉച്ചയോടെ ആഢ്യൻപാറക്ക് സമീപം തേൻപാറയിലുണ്ടായ ശക്തമായ ഉരുൾപൊട്ടൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി ഈ മേഖലയിൽ നിന്ന് നാല് കൂടുംബങ്ങളെ ദൂരിതാശ്ചാസ ക്യാമ്പുകളിലേക്ക് മാറ്റി

ഉരുൾപൊട്ടലിന് ഒപ്പമുണ്ടായ ചുഴലിക്കാറ്റിൽ കരുവാരക്കുണ്ട് തുവ്വൂർ ചെമ്പ്രശ്ശേരി മമ്പാട് എന്നിവിടങ്ങളിൽ ശക്തമായ നാശ നഷ്ടമുണ്ടായി പത്തോളം വീടുകൾ തകർന്നു ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം മുടങ്ങിയെങ്കിലും രാത്രിയോടെ പുനസ്ഥാപിച്ചു കാളികാവ് ബന്ദോടൻ പടിയിൽ തകർന്ന പാലം സൈന്യവും നാട്ടുകാരും ചേർന്ന് പുനർ നിർമിച്ചു കനത്ത മഴയോടൊപ്പം ഇന്നലെ വൈകീട്ടുണ്ടായ ശക്തമായ കാറ്റിൽ പാലക്കാട് ജില്ലയിൽ വ്യാപക നാശനഷ്ടം പലയിടത്തും മരങ്ങൾ പൊട്ടിയും കടപുഴകി വീണും ഗതാഗതം തടസ്സപ്പെട്ടു മണ്ണാർക്കാട് കുമരംപുത്തൂർ കാരാകുർശി ലക്കിടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു കൽപ്പാത്തി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ വീടുകളിൽ വീണ്ടും വെള്ളം കയറി

വെള്ളത്തിനടിയിലായ മുക്കൈ നിലംപതി പാലം വഴി ഗതാഗതം നിരോധിച്ചു

വീട് പൂർണമായും തകർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ പകരം സംവിധാനം ആകും ്വരെ താമസിപ്പിക്കാൻ കഞ്ചിക്കോട് അപ്നാ ഗർസമുച്ചയം ഉപയോഗിക്കുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി എ

ബാലൻ അറിയിച്ചു

ഇത് നാളെ വരെ തുടരും

സംസ്ഥാനത്തും ലക്ഷദ്വീപിലും വെള്ളിയാഴ്ച്ച വരെ മഴ തുടരു മെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇന്നും നാളെയും കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്

പാലക്കാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കല ക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലെ ഇടുക്കി ദേവികുളം ഉടുമ്പൻചോല പീരുമേട് താലൂക്കുകളിലും പ്രൊഫഷണൽ കോളജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപന്ങൾക്കും ഇന്ന് അവധിയാ ണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല കോഴഞ്ചേരി താലൂക്കുകളിൽ ദുരിതാശ്ചാസ കൃാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയിരിക്കുന്നത് കണ്ണൂർ സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷ കളും മാറ്റിവെച്ചു ൾ കനത്ത മഴയിൽ തകർന്ന വീടുകളും റോഡുകളും പുനർനിർമ്മി ക്കാനും കൃഷി നഷ്ടപ്പെട്ടവരെ സഹായിക്കാനും സാമ്പത്തികമായ പിന്തുണയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ആവശ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ദൂരിതബാധിതരെ സഹായിക്കാൻ സന്നദ്ധരായ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയി ലേയ്ക്ക് സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഭ്യർത്ഥിച്ചു സമാനതകളില്ലാത്ത കാലവർഷക്കെടുതി നേരിടുന്നതിന് സംസ്ഥാ നത്ത് ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് മന്ത്രി ഇ ചന്ദ്ര ശേഖരൻ കോഴിക്കോട്ട് പറഞ്ഞു ദുരന്ത നിവാരണ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മാണെന്ന് മന്ത്രി പറഞ്ഞു കേന്ദ്രസംഘത്തെ വീണ്ടും അയക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് സിപിഐഎം കേന്ദ്ര കമ്മറ്റി അംഗം ഇ

ജയരാജൻ ഇന്ന് മന്ത്രി യായി സത്യപ്രതിജ്ഞ ചെയ്യും

സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുക്കും

ജയരാജന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് യുഡിഎഫ് ബഹിഷ്ക്ക രിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല്പ തിരുവനന്തപു രത്ത് പറഞ്ഞു കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന് ആരോപണ വിധേയനായ ജല ന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അന്വേഷണസംഘം ചോദ്യം ചെയ്തു ജലന്ധറിലെ ബിഷപ് ഹൌസിൽ ഇന്നലെ രാത്രി എട്ടിന് ആരംഭിച്ച ചോദ്യം ചെയ്യൽ എട്ടര മണിക്കൂറിന് ശേഷം ഇന്ന് പുലർച്ചെ യാണ് അവസാനിച്ചത് ജലന്ധറിലെ തെളിവെടുപ്പ് പൂർത്തിയായിട്ടി ല്ലെന്നും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചതായും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന വൈക്കം ഡി

സുഭാഷ് മാധൃ മങ്ങളോട് പറഞ്ഞു പീഡനം നടന്നെന്ന് പറയുന്ന ദിവസം മഠത്തിൽ പോയിട്ടില്ലെന്നാണ് ബിഷപ്പിന്റെ മൊഴി ഇക്കാരൃങ്ങളെല്ലാം പരിശോ ധിച്ചതിന് ശേഷം മാത്രമേ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ തീരുമാന മെടുക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു ജലന്ധർ ബിഷപ്പിനെ ചോദ്യം ചെയ്യുന്നത് റിപ്പോർട്ടു ചെയ്യാൻ ജലന്ധറിൽ എത്തിയ മലയാളികൾ അടക്കം മാധ്യമ പ്രവർത്തകരെ സുരക്ഷാ ജീവനക്കാർ കയ്യേറ്റം ചെയ്യുകയും കൃാമറ അടക്കം നശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ കേരളാ പത്രപ്രവർത്തക യൂണിയൻ ഡൽഹി ഘടകം ശക്തമായി പ്രതിഷേധിച്ചു

പ്രധാന ചടങ്ങ് നടക്കുന്ന ഡൽഹിയിൽ ഫൂൾഡ്രെസ് റിഹേഴ്സൽ നടത്തി സ്വാതന്ത്രൃദിന തലേന്നായ ഇന്ന് വൈകീട്ട് ഏഴിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും

ദൂരദർശന്റെ എല്ലാ ചാനലുകളും പരിപാടി സംപ്രേക്ഷണം ചെയ്യും രാത്രി എട്ടിന് കേരളത്തിലെ എല്ലാ നിലയങ്ങളിലും രാഷ്ട്രപതി യുടെ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം നിറപുത്തരി ആഘോഷത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകീട്ട് അഞ്ചിന് തുറക്കും

ഇതിനാവശ്യമായിനെൽകറ്റകൾ അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ നിന്നും ഇന്ന് വൈക്ടീട്ട് സന്നിധാനത്ത് എത്തിക്കും പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാലും പമ്പാ മണപ്പുറത്തും ത്രിവേണിയിലും വെള്ളം കയറിയത് കാരണവും ഭക്തർ ശബരിമല യാത്ര തൽക്കാലം ഒഴിവാക്കണമെന്ന് ദേവസ്വം ബോർഡും പത്തനം തിട്ട ജില്ലാഭരണകൂടവും പൊലീസും നിർദ്ദേശിച്ചു ശബരിമലയിലേക്ക് പോകേണ്ട രണ്ട് പാലങ്ങളും വെള്ളം കയറിയ നിലയിലാണ് പമ്പ യിലെ കടകളിലും മണ്ഡപത്തിലും വെള്ളം കയറിയിട്ടുണ്ട് മൂഴിയാർ പമ്പ കക്കി ഉൾപ്പെടെ എല്ലാ ഡാമുകളും തുറന്നിരിക്കുകയാണ് പമ്പാ നദിയിലെ ജലനിരപ്പ് കുറയുന്ന മുറയ്ക്ക് പമ്പുകളുടെയും ട്രാൻസ്ഫോർമറിന്റെയും കേടുപാടുകൾ തീർത്ത് ജലവിതരണം പുനസ്ഥാപിക്കുന്നതിന് പമ്പ സന്ദർശിച്ച മന്ത്രി മാത്യു

ൃ വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി കെ

പകർച്ച വ്യാധികൾ തടയുന്നതിന്റെ തയാറെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്ക ണമെന്ന് കോട്ടയത്ത് വെള്ളപ്പൊക്കക്കെടുതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യവെ മന്ത്രി നിർദേശിച്ചു

പദ്ധതിയുടെ സംസ്ഥാ നതല ഉദ്ഘാടനം ഇന്ന് ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലയിലെ വ്ളാവട്ടി പട്ടികവർഗ്ഗ കോളനിയിൽ മന്ത്രി എ

പ്രമുഖ മതപണ്ഡിതൻ വി

സെയ്ത് മുഹമ്മദ് നിസാമി കോഴി ക്കോട്ട് നിര്യാതനായി

സംസ്ഥാന ഹജ്ജ് കമ്മറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്നു മയ്യത്ത് നമസ്ക്കാരം ഉച്ചക്ക് രണ്ടിന് പാണമ്പ്ര ജുമാഅത്ത് പള്ളിയിൽ നടക്കും കണ്ണൂർ തളിപ്പറമ്പ് കടമ്പേരിയിൽ കുളത്തിൽ മുങ്ങി ഒരാൾ മരി ച്ചു ഏഴോം ചെങ്ങലിലെ ശശിധരനാണ് മരിച്ചത് തിരുവനന്തപുരം വെഞ്ഞാറമൂട് വയ്യേറ്റ് കെ

സി ബസിടിച്ച് വീണ ബൈക്ക് യാത്രക്കാരൻ ബസിനടിയിൽപ്പെട്ട് മരിച്ചു

കണ്ണൂർ കൂടാളിയിൽ വഴിയാത്രക്കാരൻ ജീപ്പ് തട്ടി മരിച്ചു കൂടാ ളിയിലെ അനിൽകുമാറാണ് മരിച്ചത് ഇടുക്കിയിൽ ഷോക്കേറ്റ് ഒരാൾ മരിച്ചു പണിക്കൻകുടി പനയ ക്കുന്നേൽ വിജയനാണ് മരിച്ചത് കൊല്ലം ചവറ നീണ്ടകര പാലത്തിൽ ഗൃാസ് ടാങ്കർ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു

പ്രകൃതിക്ഷോഭവും വെള്ളപ്പൊക്കവും സംസ്ഥാനമൊട്ടാകെ നാശ നഷ്ടങ്ങൾ വിതച്ച സാഹചര്യത്തിൽ ആർഭാടങ്ങളും ആഘോഷ ങ്ങളും ഒഴിവാക്കി കർഷകദിനാചരണ ചടങ്ങുകൾ നടത്താൻ മന്ത്രി വി

ഘോഷയാത്ര കർഷക റാലി എന്നിവ വേണ്ടെന്ന് വയ്ക്കും സംസ്ഥാനതല കർഷക ദിനാഘോഷചടങ്ങുകളും ചിങ്ങം ഒന്നിന് സംസ്ഥാനത്തെ എല്ലാ കൃഷി ഭവനുകളിലും നടത്തുന്ന കർഷകദി നാചരണ പരിപാടികളും അവാർഡ്ദാന ചടങ്ങ് മാത്രമാക്കി ചുരു ക്കും